മൂന്ന് പുതിയ ലാബുകൾ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യും

എ ഇ യിൽ നിന്ന് മാത്രം നൂറിൽപ്പരം വിമാനങ്ങൾ സർവീസ് രൂടത്തും

കേരളത്തിൽ ഇന്ന് മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരും

പ്രതിദിനം പതിനായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിക്കാനാവുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാനും ലാബ് ജീവനക്കാർക്ക് രോഗം വരാനുള്ള സാധൃത ഒഴിവാക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും മഞ്ഞപ്പിത്തം ക്ഷയം എയ്ഡ്സ് ഡെങ്കു തുടങ്ങിയ കോവിഡ് ഇതര രോഗങ്ങളുടെ പരിശോധനയും ഇവിടെ നടത്താനാക്ടൂർ കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ ലാബുക്ടശ്ലീപൂർണ്ണമായും മറ്റ് രോഗങ്ങളുടെ പരിശോധനയ്ക്കായി ഉപയോഗിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ് വർദ്ധൻ മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ഉത്തർപ്പ്രദ്ദേശ് മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും

എ

മേയ് ആറിന് ആരംഭിച്ച വന്ദേ ഭാരത് മിഷനിൽ ഇതുവരെ എട്ട് ലക്ഷത്തി പതിനാലായിരത്തോളം പേരാണ് വിവിധ മാർഗ്ഗങ്ങളിലൂടെ രാജ്യത്ത് തിരിച്ചെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി പാർവതി

തലസ്ഥാനമായ ലക്നൌവിൽ ഇന്നലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർദ്ധന രേഖപ്പെടുത്തി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയിരുന്ന ലോക്ക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ സംസ്ഥാനം പഴയ സ്ഥിതിയിലേക്ക് മടങ്ങുകയാണെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

ഇത് നേരിടാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി

കോവിഡ് പോസിറ്റീവായി എറണാക്ടുള്ളു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം ചന്ദന പുരയിടത്തിൽ വീട്ടിൽ സ്തി

ലേക് ഷോർ ആശുപത്രിയിൽ കാൻസർ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തെ കോവിഡ് ഫലം പൊസിറ്റീവായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു

മന്ത്രിമാർക്ക് അവരുടെ ഔദ്യോഗിക വസതികളിലോ ഓഫീസിലോ ഇരുന്ന് യോഗത്തിൽ പങ്കെടുക്കാം ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഐ ടി വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്

അസമിൽ തുടർച്ചയായ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ തകർന്നു പോയ അടിസ്ഥാന സൌകര്യങ്ങൾ പുനസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാന മന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനെ അറിയിച്ചു

ഇവരെ സുരക്ഷിതമായി ഇന്ത്യയിൽ എത്താൻ സഹായിച്ചതിന് അഫ്ഗാൻ സർക്കാരിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു അഫ്ഗാനിലെ സിഖ് ഹിന്ദു സമുദായത്തിൽപെട്ടവർ ഇന്ത്യയിലേക്ക് എത്താൻ നിരന്തരമായി അപേക്ഷകൾ അയച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കായി വിസ് ് അനുവദിച്ചത് എന്ന് വിദേശകാരൃ മന്ത്രാലയ വക്താവ് ആറ്റുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ഈ സമുദായങ്ങൾക്ക് ്യേക്ക് അടുത്തിടെയും അഫ്ഗാനിൽ ഭീകരർ ആക്രമുണ്ട് നടത്തിയതായും അദ്ദേഹം അറിയിച്ചു

കൊച്ചിയിലെ എൻ ഐ

ഇതിനായി കൊച്ചിയിൽ എത്താൻ ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

രജിസ് ട്രേഷൻ നമ്പർ ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്നവ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും മാത്രം സഞ്ചരിക്കാം ജില്ലയിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് ബാധകമാണ്

വഡാല ട്രക്ക് ടെർമിനൽ പോലീസ് സ്റ്റേഷനിലെ പൊലീസുകാരനാണ് മരിച്ചത്

ഹൈവെ പട്രോൾ ടീമിൽ പ്രവർത്തിക്കുന്ന മുഴപ്പിലങ്ങാട് സ്വദേശിയായി ഇ്ദ്ദേഹത്തിന്റെ രോഗ ഉറവിടം കണ്ടെത്തിയിട്ടില്ല

പി ഓഫീസും കൺട്രോൾ റൂമും അട്ച്ചിടും

മത്സ്യ മാർക്കറ്റ് ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അനുമതി നൽകിയത് പച്ചക്കറി ഇറച്ചി സ്ഥാപനങ്ങൾ രാവിലെ എട്ട് മുതൽ മൂന്ന് വരെയും പലചരക്ക് സ്റ്റേഷനറി വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെയും പ്രവർത്തിക്കും

ഡിവിഷന് കീഴിലെ തിരൂരങ്ങാടി തിരൂർ പെരിന്തൽമണ്ണ പൊന്നാനി പട്ടാമ്പി ചാവക്കാട് താലൂക്കുകളിലെയും കൊടുങ്ങല്ലൂരിലെയും പൊതു സ്വകാര്യ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനാണ് സർക്കാർ തുക അനുവദിച്ചത്